രാമജന്മഭൂമി ബാബ്റി മസ്ജിദ് തർക്ക ഭൂമി കേസ് വേഗത്തിൽ പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി

ഇന്ന് രാവിലെ ബാംഗളുരുവിലായിരുന്നു അന്ത്യം

കാൻസർ ബാധയെ തുടർന്ന് ലണ്ടനിലും ന്യൂയോർക്കിലും അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയനായിരുന്നു

രാജ്യത്തെ പൊതുജന സേവനരൂഗത്ത് നികത്താൻ പറ്റാത്ത നഷ്ടമാണ് പ്രത്യേകിച്ചും കൂർണാട്ട്കയിലെ ജനങ്ങൾക്ക് അനന്ത്കുമാറിന്റെ വിയോക്ത്തിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്ന് രാഷ്ട്രപതി ടിറ്ററിലൂട്ട് അ്റിയിച്ചു

ത്രിദിന പാരീസ് സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീ നായിഡു ദീർഘകാലം തന്റെ സഹപ്രവർത്തകനായിരുന്ന അനന്ത്കുമാർ സമർപ്പണ മനോഭാവമുള്ള നീതിജ്ഞനായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു അനന്ത്കുമാറിന്റെ വിയോഗത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകനെയും സുഹൃത്തിനെയുമാണ് നഷ്ടമായതെന്ന് അറിയിച്ചു വിവിധ തലങ്ങളിലൂടെ രാജ്യത്തെ സേവിച്ച മികച്ച ഒരു പാർലമെന്റേറിയനായിരുന്നു അനന്ത്കുമാറെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു അനന്ത്കുമാറിന്റെ നിര്യാണം പാർട്ടിക്കും രാജ്യത്തിനും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് വാർത്താവിതരണ വകുപ്പ് മന്ത്രി രാജ്യവർദ്ധൻ റാത്തോഡ് ട്വിറ്റർ സന്ദേശത്തിൽ അറിയിച്ചു രാജ്യത്തിനുവേണ്ടിയും പാർട്ടിക്കുവേണ്ട്ടിയും തികഞ്ഞ അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ച അന്നു്കുമാറിന്റെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായി ബ്ലി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ പറഞ്ഞു കോൺഗ്രസ്സ് അധ്യക്ഷൻ ്രാഹുൽ ഗാന്ധിയും അനന്ത്കുമാറിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു

ഇതോടൊപ്പം വാരാണസിയിൽ ഗംഗാനദിയിലെ ഉൾനാടൻ ജലഗതാഗത മാർഗവും പ്രധാനമന്ത്രി നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും ലോകബാങ്ക് സഹായത്തോടെ നിർമ്മിക്കുന്ന ജൽമാർഗ് വികാസ് പദ്ധതിക്ക് കീഴിൽ ഗംഗാനദിയിൽ നിർമ്മിക്കുന്ന നാലു മൾട്ടി മോഡൽ ടെർമിനലുകളിൽ ആദ്യത്തേതാണിത് സാഹിബ്ഗഞ്ച് ഹാൽദിയ ഗാസിപൂർ എന്നിവിടങ്ങളിലാണ് മറ്റ് മൂന്ന് ടെർമിനലുകൾ നിർമ്മിക്കുന്നത്

ഇത് സംബന്ധിച്ച് അഖില ഭാരത ഹിന്ദു മഹാസഭാ അഭിഭാഷകൻ ബരുൺ കുമാർ സിൻഹയുടെ അപേക്ഷയാണ് കോടതി തള്ളിയത്

ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ യു യു ലളിത് എന്നിവരടങ്ങിയ ബഞ്ച് ഹർജി പരിഗണിക്കവേ പ്രത്യേക അന്വേഷണ സംഘത്തേയ്ക്കോ അവർ നടത്തുന്ന അന്വേഷണത്തേയോ സംശയിക്കേണ്ട ക്ട്രി്ട്യ്മില്ലെന്ന് അറിയിച്ചു

ഇവിടെ ഉച്ചതിരിഞ്ഞ് മൂന്നുമണിവരെയാണ് പോളിംഗ്

ആർ

എഫ് ബി എസ് എഫ് ഐ ടി ബി പി സംസ്ഥാന പോലീസ് എന്നീ വിഭാഗങ്ങളിൽ പെടുന്ന ഏതാണ്ട് ഒരു ലക്ഷത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിനൃസിച്ചിട്ടുണ്ട് ഇന്തൃൻ വ്യോമസേനയിലെയും ബി എസ്

മധ്യപ്രദേശ് മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ ശക്തമായ സുരക്ഷയാണ് ക്രമീകരിച്ചിട്ടുള്ളത്

കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച് തുടങ്ങിയത്

ജൂണിലെ സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ അസംബ്ലി തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്

തെലങ്കാന രാഷ്ട്ര സമിതിയുടെ നേതൃത്വത്തിലെ ഗവൺമെന്റ് സംസ്ഥാന നിയമസഭ നേരത്തെ പിരിച്ചുവിട്ടതിനെ തൂടർന്നാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്

ടി ഡി പി സി പി ഐ തെലങ്കാന ജനസമിതി കോൺഗ്രസ്സ് എന്നിവരടങ്ങുന്നതാണ് മഹാസഖ്യം ഇവർക്കിടയിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ച പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ദിനാചരണത്തിന്റെ ഭാഗമായി ഹൈദരാബാദ് ആകാശവാണി നിലയമാണ് മൂന്ന് കിലോമീറ്റർ വാക്കത്തോൺ സംഘടിപ്പിച്ചത് ആകാശവാണി ദൂരദർശൻ കേന്ദ്രങ്ങളിലെ വിവിധ വകുപ്പ് മേധാവികൾ മറ്റ് ജീവനക്കാർ തുടങ്ങിയവരും നെക്ലേസ് റോഡ് മുതൽ ആകാശവാണി നിലയംവരെ നടത്തിയ വാക്കത്തോണിൽ പങ്കെടുത്തു

വരുന്ന വ്യാഴാഴ്ചയോടെ ചുഴലിക്കാറ്റ് ചെന്നൈ നാഗപട്ടണം തീരം കടക്കാനാണ് സാധ്യത

ബുധനാഴ്ച വൈകുന്നേരത്തോടെ തമിഴ്നാടിന്റെ വടക്കൻ പ്രദേശങ്ങളിലും പുതുശ്ശേരി ആന്ധ്രയുടെ തെക്കൻ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധൃതയുണ്ട് ചിലയിടങ്ങളിൽ കനത്ത മഴയും പ്രതീക്ഷിക്കാം ഇതുകൂടാതെ ഈ സമയം ഇവിടുങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്

കാലിഫോർണിയയുടെ തെക്കു വടക്കൻ മേഖലകളിൽ ശനിയാഴ്ച നേരിയ തീപിടിത്തമുണ്ടായെങ്കിലും അതിവേഗം തീപടരാൻ സാധ്യതയുള്ളതിനാൽ പരിസരവാസികൾ ജാഗ്രതപാലിക്കണമെന്ന് അറിയിച്ചു ഉദ്യോഗസ്ഥർ ദുരിതബാധിതമായ പാരഡൈസിൽ മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു

രണ്ടരലക്ഷത്തോളം ജനങ്ങൾ പുനരധിവാസത്തിന് നിർബന്ധിതരായി

ഇന്നലെ നടന്ന ടൈ ബ്രേക്കർ ഗെയിംസിലെ രണ്ടാം സെറ്റിൽ ഇന്ത്യയുടെ ഗ്രാന്റ്മാസ്റ്റർ ഡി ഹരിക ടൂർണമെന്റിലെ മുൻ ചാമ്പ്യനായ റൃഷ്ടിയുടെ അലോക്സാണ്ട്ര കൊസ്തേന്യുകിനോട് പരാജയം ഏറ്റുവാ്ങ്ങിയതോടെയാണ് ഇത്